സുപ്രധാന ബില്ലുകൾ പാസാക്കി പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു

ചികിത്സയും കൂടുതൽ ക്കാര്യക്ഷമമാക്കണമെന്ന് സംസ്ഥാനങ്ങളോട് പ്രധാീന്റമന്ത്രി

കോവിഡ് ബാധിച്ച് മരിച്ചു

ഫിറ്റ് ഇന്ത്യ സംവാദ പരമ്പരയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തെ പൌരന്മാരുമായി സംവദിക്കും

ഭേദഗതി ലൈഫ്മിഷനിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം

കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ മുൻനിശ്ചയിച്ചതിലും എട്ട് ദിവസം മുമ്പാണ് സമ്മേളനം അവസാനിപ്പിച്ചത്

കർഷകരുടെ ഭൂമി സുരക്ഷിതമാക്കുന്നതിനും സ്വതന്ത്ര ഉൽപാദനം ഉറപ്പാക്കുന്നതിനും മെച്ചപ്പെട്ട വരുമാനം ലഭ്യമാക്കുന്നതും ലക്ഷ്യമിട്ടുള്ള കർഷക ബില്ലുകളാണ് പാസാക്കിയതിൽ പ്രധാനപ്പെട്ടത് തൊഴിൽ സുരക്ഷയും ആരോഗ്യസാഹചര്യങ്ങളും വ്യവസായ ബന്ധ ചട്ടം സാമൂഹ്യ സുരക്ഷ എന്നീ ബില്ലുകൾ ഇന്നലെ രാജ്യസഭ പാസാക്കി

മെച്ചപ്പെട്ട തൊഴിൽ സാധ്യത ഉറപ്പു വരുത്താനും തൊഴിലാളി ശാക്തീകരണം ഉറപ്പു വരുത്താനും ബിൽ സഹായകരമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

സമ്മേളനത്തിന്റെ അവസാന രണ്ടു ദിനങ്ങൾ പ്രതിപക്ഷം നടപടികൾ ബഹിഷ്ക്കരിച്ചിരുന്നു ന്യൂസ് ഡസ്ക് ആകാശവാണി

പ്രതിരോധത്തിൽ വിട്ടുവീഴ്ച പാടില്ല അതോടൊപ്പം തന്നെ സാമ്പത്തിക രംഗത്തും കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകേണ്ടതുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

കോവിഡ് ഏറ്റവുമധികം രൂക്ഷമായ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് കർണാടക ഉത്തർപ്രദേശ് തമിഴ്നാട് ഡൽഹി പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളുമായായിരുന്നു പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച

ഡൽഹി എയിംസിൽ കോവിഡ് കബാധിച്ചു ചികിത്സയിലായിരുന്നു

തന്റെ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്കു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചയാളായിരുന്നു അദ്ദേഹമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു സുരേഷ് അങ്കദിയുടെ പെട്ടെന്നുള്ള വിയോഗം ഞെട്ടലുളവാക്കിയതായി ഉപരാഷ്ട്രപതി എം

കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ്സിംഗ് പിയൂഷ്ഗോയൽ പ്രകാശ് ജാവ്ദേക്കർ ബിജെപി അദ്ധ്യക്ഷൻ ജെ

നദ്ദ മുൻ പ്രധാനമന്ത്രി എച്ച്

അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഡൽഹിയിലെ എല്ലാ സർക്കാർ ഓഫീസുകളിലും ഇന്ന് ദേശീയപതാക പകുതി താഴ്ത്തി കെട്ടും

കായികക്ഷമത ആരോഗ്യം എന്നിവയെക്കുറിച്ച് പ്രധാനമന്ത്രി അവരോട് ആശയങ്ങൾ പങ്കുവെ ക്കും പരിപാടിയിൽ പങ്കെടുക്കുന്നവരുടെ ജീവിതകഥയും അനുഭവ ങ്ങളും അവർ പ്രധാനമന്ത്രിയുമായി പങ്കുവെക്കും വിരാട് കോഹ്ലി മുതൽ മിലിന്ദ് സോമൻ വരെയുള്ളവർ പരിപാടിയിൽ പങ്കെടു ക്കുന്നുണ്ട്

അരുണാചൽ പ്രദേശിലെ തവാങ്ങിലേക്കുളള പ്രധാന പാതയിലെ നെചിഫു തുരങ്കത്തിന്റെ ശിലാസ്ഥാപനവും രാജ്യരക്ഷാമന്ത്രി ഇന്ന് നിർവഹിക്കും

കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ രാജ്യസഭയിൽ രേഖമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്

റെയിൽവേ അടയന്തര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത ഭൂമികൾ വാണിജ്യ വികസനത്തിനായി ഉപയോഗിക്കുമെന്നും ഇതുവഴി അധിക സാമ്പത്തിക സമാഹരണത്തിന് സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിച്ച് സ്റ്റേഷനുകളുടെ പുനർ വികസനം ആസൂത്രണം ചെയ്യുമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു

അംഗരാഷ്ട്രങ്ങളായ ഇന്ത്യ ബ്രസീൽ ജപ്പാൻ ജർമ്മനി എന്നിവർ വെർചൽ പുറത്തിറക്കിയ സംയുക്ത വാർത്തിട്ടിക്റ്റിപ്പിലാണ് ആവശ്യം ഉന്നയിച്ചത്

പരിഷ്കരണ പ്രക്രിയയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങൾ നിരാശ ജനകമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ ബ്രസീൽ ജപ്പാൻ ജർമ്മനി എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ എന്നിവർ വീഡിയോ കോൺഫറൻസിലൂടെ സംവദിച്ചു

അന്താരാഷ്ട്ര പ്രതിസന്ധികളുടെ സമാധാനപരമായ പരിഹാരത്തിന് ആവശ്യമായ രാഷ്ട്രീയ പിന്തുണ സൃഷ്ടിക്കാനും സഹായിക്കുമെന്ന് അവർ അഭിപ്രായപ്പെട്ടു

ഇന്ന് കിങ്സ് ഇലവൻ പഞ്ചാബ് റോയൽ ചലഞ്ചേയഴ്സ് ബാംഗ്ലൂരിനെ നേരിടും

സംരംഭകർ നടപടിക്രമങ്ങൾ ഒരു വർഷത്തിനകഠ പൂർത്തിയാക്കിയാൽ മതി ഇതു സംബന്ധിച്ച കരടു ബിൽ മന്ത്രിസഭ അംഗീകരിച്ചു

നൽകുന്ന ഭവനസമുച്ചയം സംബന്ധിച്ചു ഏതെങ്കിലും രീതിയിൽ ക്രമക്കേട് നടത്തിയിട്ടുണ്ടെങ്കിൽ സുതാര്യമായ അന്വേഷണം നടത്തി ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു